വടക്കു കിഴക്കൻ ഡൽഹിയിലെ സ്ഥിതിഗതികൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിലയിരുത്തി അക്രമ ബാധിത പ്രദേശങ്ങൾ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ സന്ദർശിച്ചു

ജമ്മുകശ്മീരിനെ സ്ംബന്ധിച്ച കേന്ദ്ര നിയമങ്ങൾ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ കേന്ദ്രമന്ത്രിസഭ തീരുമാനിച്ചു വാടക ഗർഭപാത്രവുമായി ബന്ധപ്പെട്ട സെലക്ട് കമ്മിറ്റി ശുപാർശകൾക്കും അംഗീകാരം

കൊറോണ വൈറസ് ബാധയുടെ പശ്ചാത്തലത്തിൽ അടുത്തമാസം ഡൽഹിയിൽ നടക്കുന്ന ഷൂട്ടിംഗ് ലോകകപ്പിൽ നിന്ന് ചൈന അടക്കം ആറു രാജ്യങ്ങൾ പിന്മാറി

മേഖലയിൽ സമാധാനം സ്ഥാപിക്കുന്നതിന് പൊലീസൂരി സുരക്ഷാ ഏജൻസികളും പ്രയത്നിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ആദ്ദേഹം ട്വിറ്ററിലൂടെ അറിയിച്ചു ശാന്തിയും സൌഹാർദവും രാജ്യത്തിർന്റ് മുഖമുദ്രയാണെന്ന് പറഞ്ഞ പ്രധാനമന്ത്രി രാജ്യത്ത് സമാധാന്പും സൌഹാർദവും നിലനിർത്താൻ എല്ലാവരോടും ആഹാനം ചെയ്തു മേഖലയിൽ എത്രയും വേഗം സമാധാനം പുനഃസ്ഥാപിക്കേണ്ടതാണ് പ്രധാനമെന്നും പ്രധാനമന്ത്രി ടിററ്റിൽ പറഞ്ഞു

മൌജ് പൂർ മേഖലയിലെ സുരക്ഷാ സ്ഥിതി അദ്ദേഹം വിലയിരുത്തി സ്ഥിതിഗതികൾ നിയന്ത്രണവിധേയമാണെന്ന് അദ്ദേഹം പറഞ്ഞു

കൂടുതൽ വിവരങ്ങളുമായി കരോൾ അബ്രഹാം വോയ്സ് സംഘർഷ ബാധിത പ്രദേശങ്ങൾ മുതിർന്ന ഉദ്യോഗസ്ഥർ സന്ദർശിച്ചു സ്ഥിതിഗതികൾ നിയന്ത്രണവിധേയമാണ്

ജനങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്ന തരത്തിൽ നടപടികൾ സ്വീകരിച്ചു വരുന്നുണ്ട്

ബാബർപൂർ ജോഹ്റിപൂർ മൌജ്പൂർ എസ്സിപ്പിടങ്ങളിൽ സുരക്ഷാ സേന ഇന്ന് ഫ്ളാഗ് മാർച്ച് നടത്തി

ശ്രീവാസ്തവയും കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന സ്പെഷ്യൽ കമ്മീഷണർ സതീഷ് ഗോൽചയും സന്ദർശനം നടത്തി

പോലീസിന്റെ മനോവീര്യം തകർക്കാനേ ഇത്തരം പരാമർശങ്ങൾ ഉപകരിക്കൂ എന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു ഇത്തരം കാര്യങ്ങൾ രാഷ്ട്രീയവത്ക്കരിക്കരുതെന്ന് അദ്ദേഹം പ്രതിപക്ഷ പാർട്ടികളോട് ആവശ്യപ്പെട്ടു സമാധാനം ഉറപ്പാക്കാൻ എല്ലാ പാർട്ടികളും സഹകരിക്കണമെന്ന് മന്ത്രി അഭ്യർത്ഥിച്ചു

രാജ്യം വൻ സാമ്പത്തിക ശക്തിയാകാനുളള നടപടികൾ സ്വീകരിച്ചു വരവേ പ്രതിഷേധക്കാർ വികസനം തടസ്സപ്പെടുത്താൻ ശ്രമിക്കുകയാണ്

ബ്രാഞ്ച് ത്ല് ഉദ്യോഗസ്ഥരിൽ പലർക്കും സർക്കാർ പദ്ധതികളെ കുറിച്ചുള്ള അറിവ് പരിമിതമാണെന്നും ധനകാര്യമന്ത്രി പറഞ്ഞു

കോട്ട ദൌസ ഹൈവേയിലാണ് സംഭവം വിവാഹ ചടങ്ങിൽ സംബന്ധിക്കാൻ കോട്ടയിൽ നിന്ന് സവായ് മധോപൂരിലേക്ക് പോവുകയായിരുന്നവരാണ് അപകടത്തിൽപെട്ടത്

മന്ത്രിസഭ യോഗത്തിന് ശേഷം തീരുമാനങ്ങൾ വിശദീകരിക്കെ കേന്ദ്രമന്ത്രി പ്രകാശ് ജാവദേക്കറാണ് ഇക്കാര്യം പറഞ്ഞത് വാടക ഗർഭപാത്ര ബിൽ സംബന്ധിച്ച് സെലക്ട് കമ്മിറ്റിയുടെ ശുപാർശകളെല്ലാം കേന്ദ്രി അംഗീകരിച്ചു അടുത്ത ബന്ധുക്കൾക്ക് മാത്രമേ വാടക് ഗർഭപാത്രം ന്ൽകാനാകു എന്ന വ്യവസ്ഥ മാറ്റണമെന്ന് സെലക്ട് കമ്മിറ്റി ശുപ്പർശ് ചെയ്തിരുന്നു ദമ്പതികൾ വാടക ഗർഭധാരണം തെരഞ്ഞെട്ടുക്കുന്നത് വിവാഹം കഴിഞ്ഞ് അഞ്ച് വർഷമായിട്ടും കുട്ടികൾ ഉണ്ടുക്ടാത്ത് സാഹചര്യത്തിലായിരിക്കണമെന്ന വ്യവസ്ഥയും നീക്കണമെന്ന് ഉൾല്ക്ട് കമ്മിറ്റി ശുപാർശയുണ്ടായിരുന്നു

ഇതു പ്രകാരം കുണ്ട്ലി ഹരിയാന തഞ്ചാവൂർ എന്നിവിടങ്ങളിലെ ദേശീയ ഭക്ഷ്യ സാങ്കേതികവിദ്യ സ്ഥാപനങ്ങൾക്ക് ദേശീയ പ്രാധാന്യം കൈവരും

തടികൾ അനധികൃതമായി കടത്തുന്നത് നിയന്ത്രിക്കുക വന്യജീവി സംരക്ഷണം പെട്രോളിയം ഉത്പന്നങ്ങൾ വാർത്താവിനിമയം എന്നിവയിൽ മ്യാൻമാറുമായി സഹകരിക്കുന്ന മൂന്ന് ധാരണപത്രങ്ങളിൽ ഒപ്പുവയ്ക്കുന്നതിനും മന്ത്രിസഭ അനുമതി നൽകി

വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾ ഹനിക്കുന്ന തരത്തിലാവരുത് കലാലയ രാഷ്ട്രീയ പ്രവർത്തനമെന്ന് ഹൈക്കോടതി അഭിപ്രായപ്പെട്ടു

ഇത് സംബന്ധിച്ച് വിവിധ മാനേജ്മെന്റുകൾ നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതി ഉത്തരവ്

ജെ

നേതാക്കൾക്കെതിരെ എഫ് ഐ ആർ അടക്കമുള്ള കർശന നടപടികൾ സ്വീകരിക്കാൻ പൊലീസിന് ഡൽഹി ഹൈക്കോടതി നിർദ്ദേശം നൽകി കപിൽ മിശ്ര അനുരാഗ് താക്കൂർ പർവേശ് വെർമ്മ എന്നീ ബി ജെ

ഇത് സംബന്ധിച്ച എല്ലാ വീഡിയോ ദൃശ്യങ്ങളും പരിശോധിച്ചു ശേഷം ഉചിതമായ നടപടി സ്വീകരിക്കുമെന്ന് സ്പെഷ്യൽ കമ്മീഷണർ പ്രവീർ രഞ്ജൻ ജസ്റ്റിസുമാരായ എസ്

വിഷയത്തിൽ കോടതി നാളെയും വാദം കേൾക്കും

സമരക്കാരുമായി ചർച്ച നടത്താൻ മദ്ധ്യസ്ഥരെ നിയമിച്ചതിനെ കോടതി ന്യായീകരിച്ചു

പിയുമായ് മുഹമ്മദ് അസംഖാനെ ഏഴു ദിവസത്തെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു

ഇതിനൊപ്പം വ്യാജരേഖ ചമച്ച കേസിൽ അസംഖാന്റെ ഭാര്യയും രാംപൂർ എം

എയുമായ തൻസീം ഫാത്തിമയെയും സുവർ മ്ണ്ഡലത്തിൽ നിന്നുളള എം

അബ്ദുളള അസമിന്റെ വയസ്സ് സംബന്ധിച്ച് വ്യാജരേഖ നൽകിയ കേസിൽ പ്രാദേശിക കോടതി ് ജാമ്യം നിഷേധിച്ചതിനെ തുടർന്നാണ് ഇവരെ കസ്റ്റഡിയിലെടുത്തിരുന്നത്

് ഗോൽപര കൊക്രഝാർ ദക്ഷിണ സൽമാര മാൻക്കച്ചാർ ജില്ലകളിലെ ജനങ്ങൾക്കാണ് പ്രതിരോധ കുത്തിവയ്പ്പ് ലഭ്യമാക്കുക

ചൈനയിൽ കുടുങ്ങിയ ഇന്ത്യാക്കാരടക്കമുളള വിദേശികളെ വിമാനത്തിന്റെ മടക്കയാത്രയിൽ ഇന്ത്യയിലെത്തിക്കും